എം മോട്ടോർ വാഹന നിയമഭേദഗതിയിൽ ഇളവ് തേടി കേന്ദ്രത്തെ സമീപിക്കുമെന്ന് മന്ത്രി എ

ശശീന്ദ്രൻ ട്രാഫിക് നിയമലം ഘനങ്ങൾക്ക് ഓണക്കാലത്ത് പിഴ ഈടാക്കില്ല

എഫ് ഇടപെടണമെന്ന് പി ജെ ജോസഫ്

സൌത്ത് ഇന്ത്യൻ ഇന്റർ സ്കൂൾ ബാസ്ക്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ മിനി ഗേൾസ് വിഭാഗത്തിൽ കോഴിക്കോട് സിൽവർ ഹിൽസ് ജേതാക്കളായി മോട്ടോർ വാഹന നിയമ ഭേദഗതിയിൽ ഇളവുതേടി കേന്ദ്രത്തെ സമീപിക്കുമെന്ന് മന്ത്രി എ

ശശീന്ദ്രൻ അറിയിച്ചു മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി ഇതിന് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി കോഴിക്കോട്ട് മാധ്യമങ്ങളോട്പറഞ്ഞു പുതിയ മോട്ടോർവാഹനനിയമ പ്രകാരം ട്രാഫിക് നിയമലംഘന ങ്ങളിൽ ഓണക്കാലത്ത് പിഴ ഈടാക്കില്ലെന്ന് മന്ത്രി വൃക്തമാക്കി നിയമലംഘനം നടത്തുന്നവരെ ബോധവൽക്കരിക്കുമെന്നും നിയമലംഘനങ്ങൾ കുറഞ്ഞത് സംസ്ഥാനം നടത്തിയ ബോധവത്കരണം മൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രളയത്തെ തുടർന്ന് കിടപ്പാടം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു ഭൂമിയുടെ ലഭ്യതക്കുറവാണ് പുനരധിവാസം നേരിടുന്ന പ്രധാന വെല്ലുവിളി സമതല പ്രദേശങ്ങൾ കുറവായ വയനാട്ടിലും ഇടുക്കിയിലും വാസയോഗ്യമായ ഭൂമി ലഭ്യമാക്കുന്നതിന് സാവകാശം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു പുൽപ്പള്ളി പാടിച്ചിറയിൽ ജില്ലാ ഭരണകൂടം നിർമ്മിച്ച മൂന്ന് വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പ്രത്യേക പഠനം നടത്തി മാത്രമാണ് പുനരധിവാസത്തിന് സ്ഥലം ഏറ്റെടുക്കുക ത്രിതല പഞ്ചായത്തുകൾ പ്രദേശത്തെ ഭൂമി കണ്ടെത്താൻ നടപടി ഉൌർജ്ജിതപ്പെടുത്തണമെന്നും സ്ഥലം വാങ്ങി നൽകാൻ ഗവൺമെന്റ് എല്ലാ സംവിധാനങ്ങളും സജ്ജീകരിച്ചി ട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അടിയന്തര ധനസഹായമായ പതിനായിരം രൂപ ബാങ്ക് അക്കൌണ്ടുകളിൽ താമസിയാതെ എത്തുമെന്നും ഇതിന് നടപടി ത്വരിതപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു പാലാ ഉപതെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ യു

എഫ് ഇടപെടണമെന്ന് കേരള കോൺഗ്രസ് എം വർക്കിങ് ചെയർമാർ പി

ജോസഫ് ആവശ്യപ്പെട്ടു

സി സി അധ്യ ക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി ഫോണിൽ സംസാരിച്ചെന്നും മോൻസ് ജോസഫിനെയും ജോയ് എബ്രഹാമിനെയും ചർച്ച കൾക്കായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു അതേസമയം പി

ജോസഫിനെ അനുനയിപ്പിക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കൾ ഉച്ചകഴിഞ്ഞ് ചർച്ചനടത്തും

എഫ് കൺവീനർ ബെന്നി ബെഹനാൻ കോൺഗ്രസ് നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ സി ജോസഫ് എന്നിവരാണ് കോട്ടയത്ത് ചർച്ചയിൽ പങ്കെടുക്കുക പാലാ ഉപതെരഞ്ഞെടുപ്പിൽ യു

എഫ് സ്ഥാനാർത്ഥിയുടെ വിജ യമാണ് ലക്ഷ്യമെന്നും പ്രചാരണത്തിൽ മാത്രമാണ് ഇപ്പോൾ ശ്രദ്ധ യെന്നും ജോസ് കെ മാണി പറഞ്ഞു പകതയില്ലെന്ന പി ജെ ജോസഫിന്റെ അഭിപ്രായത്തോട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്ന് അദ്ദേഹം പാലായിൽ പറഞ്ഞു

ഡി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു

ജോസഫിന്റെ പ്രസ്താവന ഇതിന് തെളിവാണെന്നും സംസ്ഥാ നത്ത് പുതിയ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുകയാണെന്നും കോടിയേരി തിരുവനന്തപുരത്ത് അഭിപ്രായപ്പെട്ടു സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് നാളെ തിരി തെളി യും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം നിശാഗ ന്ധിയിൽ ഉദ്ഘാടനം ചെയ്യും

വൈകിട്ട് ടാഗോർ ഹാളിൽ മന്ത്രി എ

ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും മാനാഞ്ചിറയിലെ വേദിയിൽ കളരിപ്പയറ്റ് പ്രദർശനം പഞ്ചാരിമേളം നാട്ടരങ്ങ് എന്നിവ നടക്കും ഓണക്കാല പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് തുറക്കും നാളെ പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ഓണക്കാല പൂജകൾക്ക് തുടക്കമാകും പതിവ് പൂജകൾക്ക് പുറമെ വിശേഷാൽ പൂജകളും ഉണ്ടാകും വെള്ളി യാഴ്ച നടയടയ്ക്കും സുപ്രീംകോടതി നിർദേശ പ്രകാരം കൊച്ചി മരടിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിച്ചുമാറ്റാൻ ഗവൺമെന്റ് നടപടി തുടങ്ങി നട പടി വേഗത്തിലാക്കുന്നതിനായി ചീഫ് സെക്രട്ടറി ടോം ജോസ് ഇന്ന് പൊളിക്കേണ്ട ഫ്ളാറ്റുകൾ സന്ദർശിക്കും മരട് നഗരസഭാ അധികൃതരുമായി അദ്ദേഹം ചർച്ച നടത്തും ഫ്ളാറ്റിലെ താമസ ക്കാരെ ഉടൻ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാകലക്ടർക്കും മരട് നഗരസഭയ്ക്കും അദ്ദേഹം ഇന്നലെ കത്ത് നൽകിയിരുന്നു സുപ്രിം കോടതി ഉത്തരവ് അടിയന്തരമായി നടപ്പാക്കണമെന്ന് കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു അതിനിടെ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് എറ ണാകുളം ജില്ലാ കലക്ടർ എസ് സുഹാസ് മരട് നഗരസഭാ സെക്ര ട്ടറിയുമായും ചെയർപേഴ്സണുമായും ചർച്ച നടത്തി ഫ്ളാറ്റ് പൊളിക്കുന്നതിന് നഗരസഭയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് കലക്ടർ അറിയിച്ചു ഉത്തരവ് നടപ്പാക്കേണ്ടത് നഗരസഭ യാണെന്നും പുനരധിവാസം അടക്കം കാര്യങ്ങളിൽ ജില്ലാഭരണ കൂടത്തിന്റെ പിന്തുണയുണ്ടാകുമെന്നും കലക്ടർ പറഞ്ഞു ഫ്ളാറ്റ് പൊളിക്കൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് നഗരസഭാ അധ്യക്ഷയും അറിയിച്ചു

അതിനിടെ മരട് ഫ്ളാറ്റ് ഉടമകൾ സുപ്രീംകോടതിയിൽ റിട്ട് ഹർജി ഫയൽചെയ്തു ഫ്ളാറ്റ് ഉടമകളുടെ ഭാഗം കേൾക്കാതെ യാണ് വിധിയെന്ന് ഹർജിയിൽ പറയുന്നു കശ്മീരിലെ ശ്രീനഗറിൽ ഒരുമാസത്തിലേറെയായി വീട്ടുതട ങ്കലിൽ കഴിയുന്ന സി

എം കേന്ദ്രകമ്മറ്റി അംഗം എം വൈ തരിഗാമിയെ ചികിത്സക്കായി ന്യൂഡൽഹിയിലെ എയിംസ് ആശു പത്രിയിലേക്ക് മാറ്റി സുപ്രീംകോടതി നിർദേശത്തെ തുടർന്നാണ് ഇന്നുരാവിലെ അദ്ദേഹത്തെ എയിംസിൽ പ്രവേശിപ്പിച്ചത്

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഈയിടെ സന്ദർശിച്ചിരു ന്നു അദ്ദേഹം സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂല ത്തിന്റെ അടിസ്ഥാനത്തിലാണ് തരിഗാമിയെ എയിംസിലേക്ക് മാറ്റാൻ കഴിഞ്ഞ വ്യാഴാഴ്ച സുപ്രീംകോടതി ഉത്തരവിട്ടത് കോഴിക്കോട്ട് സൌത്ത് ഇന്ത്യൻ ഇന്റർ സ്കൂൾ ബാസ്ക്കറ്റ്ബാൾ ചാമ്പ്യൻഷിപ്പിൽ മിനി ഗേൾസ് വിഭാഗത്തിൽ ആതിഥേയരായ കോഴിക്കോട് സിൽവർ ഹിൽസ് ജേതാക്കളായി സെന്റ് മൈക്കിൾസിനെയാണ് പരാജയപ്പെടുത്തിയത് മിനി ബോയ് സ് വിഭാഗത്തിൽ സിൽവർഹിൽസ് പബ്ലിക് സ്കൂൾ സിൽവർ ഹിൽസ് ഹൈസ്ക്കൂളിനെ പരാജയപ്പെടുത്തി

തുടർന്ന് ബോയ് സ് വിഭാഗത്തിൽ സിൽവർഹിൽസ് ഹയർസെക്കൻഡറി സ്കൂളും സെന്റ്ജോസഫ് തിരുവനന്തപുരവും ഏറ്റുമുട്ടും യുഎസ് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ റാഫേൽ നദാലിന് കിരീടം

തിരുവനന്തപുരത്ത് ഇന്ത്യ എ ടീമിനെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക എ ടീമിന് ബാറ്റിങ് തകർച്ച

ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു രണ്ട് ടെസ്റ്റുകളാണ് ദക്ഷിണാഫ്രിക്ക എ ടീം ഇന്ത്യ എ ടീമു മായി ഈ പര്യടനത്തിൽ കളിക്കുന്നത്

അഞ്ച് ഏകദിനങ്ങൾ ഉൾപ്പെട്ട പരമ്പ നാലിലും ജയിച്ച് ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു മലപ്പുറം ജില്ലാ അത്ലറ്റിക് മീറ്റിൽ പതിനൊന്നാം തവണയും കടകശേരി ഐഡിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കിരീടം ചൂടി

എച്ച്

എച്ച്

എസ് ഉയർത്തിയ ശക്തമായ വെല്ലുവിളിയെ മറികടന്നാണ് വിജയം

മുത്തൂറ്റിലെ തൊഴിൽ പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെന്റ് മുൻകൈ എടുത്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറ ഞ്ഞു തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് വീണ്ടും യോഗം വിളിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു നിക്ഷേപ സൌഹൃദ സംസ്ഥാനമെന്ന കേരളത്തിന്റെ പ്രതിച്ഛായയെ മുത്തൂറ്റ് സമരം ബാധിക്കുമോ എന്ന ചോദ്യത്തോട് മുഖ്യമന്ത്രി യുടെ പ്രതിവാര ടെലിവിഷൻ സംവാദ പരിപാടിയായ നാം മുന്നോ ട്ടിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ശിരുവാണി അണക്കെട്ടിലെ ജലനിരപ്പ് പൂർണ സംഭരണശേ ഷിയിലേക്ക് ഉയർത്താൻ അനു വദിക്കേണ്ടതില്ലെന്ന കേരള ഗവൺമെന്റിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭം സംഘ ടിപ്പിക്കാൻ കോയമ്പത്തൂരിൽ ചേർന്ന വിവിധ രാഷ്ട്രീയപാർട്ടി കളുടെയും സംഘടനകളുടെയും യോഗം തീരുമാനിച്ചു കോയ മ്പത്തൂരിലേക്ക് വരുന്ന കേരളത്തിലെ എല്ലാ ബസ്സുകളും തിരുവ ള്ളുവർ നഗരത്തിൽ പ്രവേശിക്കുന്നത് തടയുമെന്ന് താൻതായി പെരിയാർ ദ്രാവിഡക്കഴകം ജനറൽസെക്രട്ടറി കെ രാമകൃഷ്ണൻ കോയമ്പത്തൂരിൽ അറിയിച്ചു ശിരുവാണി അണക്കെട്ടിൽ വെള്ളം നിറയാതിരിക്കാൻ കേരളം വിവിധ ഭാഗങ്ങളിൽ ചെക്ഡാമുകൾ നിർമ്മിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പദ്ധതി പ്രദേശത്ത് കനത്ത മഴ ലഭിക്കു ന്നുണ്ടെങ്കിലും കേരള ഗവൺമെന്റ് വിവിധ കനാലുകളിലേക്ക് വെള്ളം തിരിച്ചുവിടുകയാണ് ഇതുമൂലം ഡാം നിറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു കോയമ്പത്തൂരിലെ ജനങ്ങളുടെ പ്രധാന കുടി വെള്ള സ്രോതസ്സ് ശിരുവാണി ഡാമിലെ ജലമാണെന്നും അദ്ദേഹം പറഞ്ഞു

പി ആവശ്യപ്പെട്ടു കഴിഞ്ഞ യു ഡി ഫ് ഗവൺമെന്റ് രണ്ട് ഹെക്ടറിൽ താഴെ ഭൂമിയുളള കർഷകർക്ക് നൽകിയ കർഷക ക്ഷേമ പെൻഷനിൽ പുതിയ മാനദണ്ഡങ്ങൾ കൂട്ടി ചേർത്ത് പകുതിയിലേറെ കർഷകർക്ക് പെൻഷൻ നിഷേധിച്ചു നടപടി പിൻവലിക്കണമെന്നും എം

ഇടുക്കിയിൽ ആവിശ്യപ്പെട്ടു ഓണവിൽപ്പനയ്ക്കായി പൂവ് വാങ്ങാൻ കണ്ണൂർ പേരാവൂർ മേൽമുരിങ്ങോടിയിൽ നിന്ന് മൈസൂരുവിൽ പോയവർ സഞ്ചരിച്ച ഗുഡ്സ് ഓട്ടോ അപകടത്തിൽപെട്ട് ഒരാൾ മരിച്ചു മൂന്ന് പേർക്ക് സാരമായി പരിക്കേറ്റു

കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല സേവ് എ സൺഡേ സേവ് എ ബീച്ച് പദ്ധതിയുടെ ഭാഗമായി ബേപ്പൂർ പുലിമുട്ട് ബീച്ചിൽനിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്തു വിവിധ ക്ലബുകളുടെയും സംഘടനകളുടെയും വിദ്യാർഥിക ളുടെയും സഹകരണ ത്തോടെ നടത്തിയ പ്രവർത്തനത്തിന് ജില്ലാകലക്ടർ സാംബശിവറാവു നേതൃത്വം നൽകി